പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നുച്ചയ്ക്ക് വീഡിയോ കോൺഫ റൻസിലൂടെ ബി ജെ

പ്രവർത്തകരുമായി സംവദിക്കും സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങൾക്ക് തിരു വനന്തപുരത്ത് സമാപനമായി

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ജനമഹായാത്ര ഇന്ന് സമാപിക്കും

സനാതന ധർമ്മ പരിഷത്തിന്റെ ഹൈന്ദവം അയ്യപ്പഭക്തസംഗമം ഇന്ന് വൈകീട്ട് കോഴിക്കോട്ട് പാകിസ്താന്റെ പിടിയിലായ ഇന്ത്യൻ വ്യോമസേനയിലെ വിങ് കമാൻഡർ അഭിനന്ദൻ വർദ്ധമാനെ ഉടൻ വിട്ടയക്കണമെന്ന് ഇന്ത്യ ആവ ശ്യപ്പെട്ടു ന്യൂഡൽഹിയിൽ പാകിസ്താൻ ഉപസ്ഥാനപതിയെ വിദേശ കാര്യമന്ത്രാലയത്തിൽ വിളിച്ചുവരുത്തിയാണ് ഈ ആവശ്യമുന്നയിച്ച ത്

ജനീവ ധാരണയനുസരിച്ച് ഇന്ത്യൻ പൈലറ്റിനെ യുദ്ധതടവുകാരനായി പരിഗ ണിച്ച് സുരക്ഷിതമായി മടക്കി അയക്കണമെന്നാണ് ഇന്ത്യ ആവശ്യപ്പെട്ട ത് മാനസികമായോ ശാരീരികമായോ തടവുകാരെ പീഡിപ്പിക്കാൻ പാടി ല്ലെന്നാണ് ജനീവ കരാറിലെ നിർദ്ദേശം പുൽവാമ ഭീകരാക്രമണത്തിൽ ജെയ്ഷെ മുഹമ്മദിന്റെ പങ്ക് വൃക്തമാക്കുന്ന തെളിവുകൾ പാക് ഉപസ്ഥാ നപതിക്ക് വിദേശകാര്യമന്ത്രാലയം കൈമാറിയിട്ടുണ്ട് ഇന്ത്യ പാക് അതിർത്തിയിലെ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ കാസർകോട് ജില്ലയിലെ തീരങ്ങളിലും സുരക്ഷ ശക്തമാക്കി കടൽവഴി ഭീകരാക്രമണം തടയാൻ മത്സ്യത്തൊഴിലാളികൾക്കും തീരദേശവാസി കൾക്കും ബോധവൽക്കരണം നടത്തി കടൽവഴി ഭീകരർ കേരള തീരത്ത് എത്താൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ മുന്നറി യിപ്പിനെത്തുടർന്നാണ് സുരക്ഷ കർശനമാക്കിയത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബി ജെ

പ്രവർത്തകരുമായി വീഡിയോ കോൺഫറൻസിങിലൂടെ സംവദിക്കും

ഒരു കോടിയിലേറെ ആളുകൾ പരിപാടിയിൽ പങ്കെടുക്കും പാർട്ടി പ്രവർത്തകർക്ക് പുറമെ സമൂഹത്തിന്റെ നാനാതുറകളിൽ പ്രവർത്തിക്കുന്നവരും സംവാദത്തിൽ സംബന്ധിക്കും

തലമുറകളായി വനത്തിൽ കഴിയുന്നവരെ ഒഴിപ്പിക്കുന്നത് ദൂരവൃാപക പ്രത്യാഘാതങ്ങൾക്ക് കാരണമാകുമെന്ന് അപേക്ഷയിൽ കേന്ദ്രഗവൺമെന്റ് കോടതിയെ അറിയിച്ചു സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷങ്ങൾക്ക് തിരുവ നന്തപുരത്ത് സമാപനമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ സമാപന സമ്മേളനം തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്തു

മുഖ്യമന്ത്രിയുടെ പ്രസംഗങ്ങളുടെ സമാഹാരവും ചടങ്ങിൽ പ്രകാശിപ്പിച്ചു

സി സി പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ നയിക്കുന്ന ജനമ ഹായാത്ര ഇന്ന് തിരുവനന്തപുരത്ത് സമാപിക്കും ഗാന്ധിപാർക്കിൽ വൈകീട്ട് ചേരുന്ന സമാപന സമ്മേളനം മുൻമുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്തെ തോട്ടം തൊഴിലാളികളുടെ ദിവസവേതനത്തിൽ അൻപത് രൂപ ഇടക്കാലാശാസം അനുവദിക്കാൻ തീരുമാനമായി തിരു വനന്തപുരത്ത് മന്ത്രി ടി

രാമകൃഷ്ണന്റെ സാന്നിധ്യത്തിൽചേർന്ന പ്താന്റേഷൻ ലേബർ കമ്മിറ്റിയിലാണ് തീരുമാനം വേതന പരിഷ്കരണ ത്തിൽ ജൂണിൽ വീണ്ടും ചർച്ച നടത്തി അന്തിമ കരാർ ഒപ്പുവെയ്ക്കാ നാണ് ധാരണ ഈ ഫെബ്രുവരി ഒന്നുമുതൽ വർധനയ്ക്ക് പ്രാബല്യമു ണ്ടാകും കേരഫെഡ് ഉൽപ്പന്നങ്ങൾ രാജ്യത്തൊട്ടാകെ സുലഭമായി ലഭ്യമാക്കാനാണ് ഗവൺമെൻറ് ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി വി

സുനിൽകുമാർ കൊല്ലത്ത് പറഞ്ഞു കരുനാഗപ്പള്ളിയിലെ കേരഫെഡ് പ്ലാന്റിൽ ആധുനിക കൊപ്ര സംസ്കരണശാലയ്ക്ക് തറക്കല്ലിടുകയായി രുന്നു മന്ത്രി കൂടുതൽ നാളികേര മൂല്യവർധിത ഉത്പന്നങ്ങൾ തയ്യാറാ ക്കാനും മേഖലയിൽ വൈവിധ്യവൽക്കരണം നടപ്പാക്കാനും തയ്യാറാക ണമെന്ന് മന്ത്രി ആവശ്യപ്പെട്ടു നാളികേരവികസന കൌൺസിലിന്റെ പ്രവർത്തനം വിപുലീകരിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ചിട്ടുണ്ടെന്നും സുനിൽകുമാർ വെളിപ്പെടുത്തി

സർവീസ് ചാർജില്ലാതെ വൈദ്യുതിബിൽ ഓൺലൈനായി അട യ്ക്കാൻ ബി

സംവിധാനം ഉൾപ്പെടെ മൂന്ന് ഓൺലൈൻ സേവനങ്ങൾ കെ

മന്ത്രി എം

സേവനദാതാക്കൾക്ക് സർവീസ് ചാർജ് കെ എസ് ഇ ബി

പരാതി പരിഹരിക്കാനും സംശയനിവാരണത്തിനും സോഷ്യൽമീഡിയ ഡെസ്ക് കേന്ദ്രീകൃത കസ്റ്റമർ സെന്ററിൽ ആരംഭി ച്ചു സാങ്കേതിക സ്ഥാപനങ്ങളിൽ പരിശീലനത്തിനായി പ്രൊജക്റ്റ് തിര ഞ്ഞെടുക്കാനും ഫീസടയ്ക്കാനും സഹായിക്കുന്ന ഓൺലൈൻ പോർട്ട ലാണ് മറ്റൊരു സംവിധാനം

ഇന്ത്യൻ മണ്ണിൽ ഓസ്ട്രേലിയയുടെ ആദ്യ പരമ്പര വിജയമാണിത്

ഇന്ന് കേരളം നാഗാലാന്റിനെ നേരിടും രാവിലെ ഒമ്പതിനാണ് മത്സരം കോഴിക്കോട്ട് ഐ ലീഗ് ഫുട്ബോളിൽ ആതിഥേയരായ ഗോകുലം എഫ്

പോയിന്റ് പട്ടികയിൽ പത്താം സ്ഥാനക്കാരായ ഗോകുലത്തിന് ഇന്നത്തെ കളി നിർണായകമാ ണ്

സംസ്ഥാന വനിതാ ശിശു വികസന വകുപ്പിന്റെ സമ്പുഷ്ടകേരളം പോഷണ പക്ഷാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഇന്ന് കണ്ണൂ രിൽ മന്ത്രി കെ

ശൈലജ പരിപാടി ഉദ്ഘാടനം ചെയ്യും മന്ത്രി രാമ ചന്ദ്രൻ കടന്നപ്പള്ളി അധ്യക്ഷനായിരിക്കും സനാതന ധർമ പരിഷത്തിന്റെ നേതൃത്വത്തിൽ ഹൈന്ദവം അയ്യപ്പഭ ക്തസംഗമം ഇന്ന് വൈകീട്ട് കോഴിക്കോട് കടപ്പുറത്ത് നടക്കും

തിരുവനന്തപുരം അഗസ്യാർകൂടത്തിലെ ആചാരങ്ങൾ നടത്തുന്ന ഭഗവാൻ കാണി മലവാരി മാന്ത്രിക സമ്പ്രദായം പിന്തുടരുന്ന ആചാര്യ കല്ലടിക്കോട് തങ്കമ്മ പുരാവസ്തു വിദഗ്ധൻ കെ

മുഹ മ്മദ് എന്നിവരെ ചടങ്ങിൽ ആദരിക്കും അയ്യപ്പഭക്തജനസംഗമം വീഡിയോ സന്ദേശത്തിലൂടെ കാഞ്ചി കാമകോടി മഠാധിപതി വിജയേന്ദ്ര സരസ്വതി ഉദ്ഘാടനം ചെയ്യും റോഡ് നിർമാണത്തിൽ അപാകതകളുണ്ടായാൽ കരാറുകാരന്റെ ലൈസൻസ് റദ്ദാക്കുന്നതുൾപ്പെടെ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി ജി സുധാകരൻ അറിയിച്ചു ആധുനിക നിലവാരത്തിലാണ് സംസ്ഥാ നത്തുടനീളം റോഡുകൾ നിർമിക്കുന്നത്

ഡി എഫ്

കോഴിക്കോട് ജില്ലാ സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമാരായ ഇ

കുമാരൻ ടി

ഗോപാലൻ എന്നിവരുടെ സ്മരണയ്ക്ക് ബാങ്ക് ഏർപ്പെടുത്തിയ സംസ്ഥാന ജില്ലാതല സഹകാരി അവാർഡുകൾ മന്ത്രി കടകംപള്ളി സൂരേന്ദ്രൻ ഇന്ന് ഉച്ചയ്ക്ക് കോഴിക്കോട്ട് സമ്മാനിക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്റ്റ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി പ്രസി ഡന്റ് പാലേരി രമേശനാണ് മികച്ച സംസ്ഥാന സഹകാരി

നാരാ യണൻ നമ്പ്യാരാണ് മികച്ച ജില്ലാ സഹകാരി സംസ്ഥാനത്ത് ലഹരി ഉപയോഗത്തിനെതിരേ ധർമയുദ്ധമാണ് എക്സൈസ് വകുപ്പ് നടത്തുന്നതെന്ന് മന്ത്രി എം

അടൂരിൽ എക്സൈസ് ഓഫീസിന് തറക്കല്ലിടുകയായിരുന്നു അദ്ദേഹം കിഫ്ബി പദ്ധതിയിലൂടെ അൻപതിനായിരം കോടി രൂപയുടെ വികസന മാണ് സംസ്ഥാന ഗവൺമെന്റ് ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി അറിയിച്ചു അട്ടപ്പാടി സമഗ്ര കുടിവെള്ള പദ്ധതിയുടെ ഒന്നാംഘട്ട പ്രവർത്തിയുടെ നിർമാണം രാവിലെ മന്ത്രി കെ കൃഷ്ണൻ കുട്ടി അഗളിയിൽ ഉദ്ഘാടനം ചെയ്യും

സംസ്ഥാന ഗവൺമെന്റിന്റെ ആയിരം ദിനാഘോഷത്തിന്റെ ഭാഗമായി മഞ്ചേശ്വരം ദുർഗിപ്പള്ളിയിൽ സ്ഥാപിക്കുന്ന തുളുഭവന് തറക്കല്ലിടുകയായിരുന്നു സ്പീക്കർ കുടുംബശ്രീ മഹിളാ മിത്ര വായ്പാ പദ്ധതിയുടെ പാലക്കാട് ജില്ലാതല ഉദ്ഘാടനം ടൌൺ ഹാളിൽ നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ രാവിലെ ഉദ്ഘാടനം ചെയ്യും സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക സുരക്ഷ ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായാണ് കുടുംബശ്രീയുടെ മഹിളാ മിത്ര പദ്ധതി ജില്ലയിൽ നടപ്പാക്കുന്നത് കണ്ണൂർ വിമാനത്താവളത്തിൽനിന്ന് മസ്കറ്റ് സർവീസുകൾ ഇന്ന് ആരംഭിക്കും

കാലിക്കറ്റ് സർവകലാശാല സി സോൺ കലോത്സവത്തിലെ സ്റ്റേജ് മത്സരങ്ങൾ ഇന്ന് സർവകലാശാല ക്യാമ്പസിൽ തുടങ്ങും മഹാരാജാസ് കോളേജിൽ കൊലചെയ്യപ്പെട്ട അഭിമന്യുവിന്റെ മാതാപിതാക്കൾ കലോ ത്സവം ഉദ്ഘാടനം ചെയ്യും